മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ

സി പ്രസിഡന്റായി നിയമിച്ചു കേരളത്തിലെ മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തും കന്യാസ്ത്രീ പീഡന കേസിൽ ജലന്ധർ ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഏഷ്യകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക്കിസ്ഥാനെ എട്ട് വിക്ക റ്റിന് തകർത്തു ദേശീയ സീനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരള ത്തിന്റെ സജൻ പ്രകാശിന് ഇരട്ട സ്വർണ്ണം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്ന് യാത്രാ വിമാന ത്തിന്റെ പരീക്ഷണ പറക്കൽ

കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ രാവിലെ അംഗീകരിച്ച ഓർഡിനൻസിന് രാത്രിയോടെയാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഒരുമിച്ച് മൂന്നുവട്ടം തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തുന്ന മുത്തലാഖ് മൂന്ന് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ക്രുറ്റമാക്കിയാണ് കേന്ദ്രം ഓർഡിനൻസ് പുറത്തിറക്കിയത് സുപ്രീം കോടതി വിലക്ക് ഉണ്ടായിട്ടും മുത്തലാഖ് തുടരുന്ന സാഹചരൃത്തിലാണ് അടിയന്തരമായി ഓർഡിനൻസ് കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

സുധാകരൻ എം ഐ ഷാനവാസ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിയമിച്ചു സംസ്ഥാന പ്രചാ രണ സമിതിയുടെ ചെയർമാനായി കെ മുരളീധരനെയും നിയോഗിച്ചിട്ടുണ്ട്

ഡി എഫ് കൺവീനറായി ബെന്നി ബഹനാനെ നിയ മിക്കാൻ തീരുമാനിച്ചതായും ഡൽഹി റിപ്പോർട്ടുകൾ പറയു ന്നു ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് ഉണ്ടാകും

മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി പ്രസിഡന്റായി നിയമിച്ച തീരുമാനം സ്വാഗതാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ഊർജ്ജസ്വലതയോടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സുധാകരൻ അടക്കം എല്ലാവരും ഈ തീരുമാനം അംഗീകരിക്കുമെന്നും ചെന്നിത്തല വിശ്വാസം പ്രകടിപ്പിച്ചു മഴക്കെടുതിയും ഉരുൾപൊട്ടലും മൂലമുണ്ടായ നാശ നഷ്ടം വിലയിരുത്താൻ കേന്ദ്രസംഘം ഇന്ന് രാത്രിയോടെ കേരളത്തിലെത്തും ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെക്ര ട്ടറി ബി

പി ജയരാജൻ അറിയിച്ചു

അടുത്ത ആറുമാസത്തേക്കാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഹാൻടെക്സ് നെയ്ത്തുകാർക്ക് നൽകും ഉല്പന്നങ്ങൾ അവർ തന്നെ വാങ്ങുകയും ചെയ്യും പ്രളയക്കെടുതിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ കേടുപാടുണ്ടായ മീൻപിടുത്ത വള്ളങ്ങളിൽ നല്ലൊരു ഭാ ഗവും അറ്റകുറ്റപ്പണി ചെയ്ത് നൽകിയതായി മന്ത്രി ജെ മേ ഴ്സിക്കുട്ടിയമ്മ തിരുവനന്തപുരത്ത് അറിയിച്ചു

ശേഷിക്കുന്ന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു കന്യാസ്ത്രീ പീഡന കേസിൽ ജലന്ധർ ബിഷപ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് വീണ്ടും പ്രത്യേക അന്വേ ഷണ സംഘം ചോദ്യം ചെയ്യും ഇന്നലെ ഏഴുമണിക്കൂറോളം ബിഷപ്പിനെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യാവലിയുടെ അടി സ്ഥാനത്തിൽ രണ്ട് സംഘങ്ങളാണ് ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തത് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് എസ്

എഫ് ഐ വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിടുന്ന പി കെ ശശി എം എൽ എ ഇന്നലെ സി

കെ ബാലനും പി

ശ്രീമതി എം പിയുമാണ് കമ്മീഷൻ അംഗങ്ങൾ തിരു വനന്തപുരത്ത് എ കെ ജി സെന്ററിൽ വിളിച്ചുവരുത്തിയ ശശി യിൽനിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു പരാതി യിൽ അന്വേഷണം തുടരുകയാണെന്ന് കമ്മീഷൻ അംഗം പി

എന്നാൽ ഇതിന്റെ വിശദാംശ ങ്ങൾ വെളിപ്പെടുത്താൻ അവർ വിസമ്മതിച്ചു കേരളത്തിലെ പ്രളയബാധിതർക്ക് സഹായമെത്തിക്കുന്ന തുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മലയാളികളുമായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും ന്യൂയോർക്കിലെ റോക്ലാൻഡ് കൌണ്ടിയിൽ ക്രൌൺ പ്ലാസ യിലാണ് വൈകിട്ട് യോഗം ചേരുന്നത്

സാലറി ചലഞ്ച് വഴി രണ്ടുതരം ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് നേതൃയോഗ്ഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്ചാസത്തെ ഗവൺമെന്റ് വിവാദമാക്കിയതായും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഏഷ്യാ കപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ പാക്കിസ്ഥാനെ എട്ട് വിക്കറ്റിന് തകർത്തു

ഭുവനേശ്വർ കുമാറും കേദാർ ജാദവും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഭുവനേശ്വർ കുമാറാണ് മാൻ ഓഫ് ദി മാച്ച് ഗ്രൂപ്പ് എ ചാമ്പ്യൻമാരായി ഇന്ത്യയും ഹോംങ്കോങിനെ വീഴ്ത്തി പാക്കിസ്ഥാനും സൂപ്പർ ഫോറിൽ

ഇന്ന് വൈകിട്ട് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരി ടും ദേശീയ സീനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം കേരളത്തിന്റെ സജൻ പ്രകാശിന് ഇരട്ട സ്വർണം

തിരുവനന്തപുരം അക്വാട്ടിക് സ്റ്റേഡിയത്തിൽ ഇന്നലെ സജന്റെത് ഉൾപ്പെടെ നാല് റെക്കോർഡുകളാണ് പിറന്നത്

യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കേരള യോഗ അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കു ന്നത്

കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രാ വിമാ നത്തിന്റെ പരീക്ഷണ പറക്കൽ ഇന്ന് രാവിലെ നടത്തും

ഇതാദ്യമായാണ് വലിയ വിമാനം കണ്ണൂരിലിറങ്ങുന്നത് അതിനിടെ വിമാനത്താവളത്തിന് ലൈസൻസ് ലഭിക്കുന്ന തിന് മുന്നോടിയായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടത്തുന്ന പരിശോധന പൂർത്തിയായി ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി നവതിയോടനു ബന്ധിച്ച് നടത്തുന്ന മണ്ഡല മഹായജ്ഞത്തിന്റെ വിളംബര ജ്യോതി പ്രയാണങ്ങൾ ഇന്ന് ശിവഗിരിയിൽ സംഗമിക്കും അല്പസമയത്തിനകം ചെമ്പഴന്തിയിലെ ഗുരുവിന്റെ വസ തിയിലെ കെടാവിളക്കിൽനിന്ന് സ്വാമി പ്രകാശാനന്ദ അവ താരജ്യോതി കൈമാറും

സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന നൈപുണ്യ വികസന പദ്ധതികൾ യുവാക്കൾ പരമാവധി ഉപ യോ ഗ പ്പെടു ത്തണ മെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു തൊഴിൽ നൈപുണ്യ പരി ശീലനം വ്യാപിപ്പിക്കുന്നതിന് വ്യവസായ സ്ഥാപനങ്ങളും ഐ ടി

ആറ്റിങ്ങലിൽ ഐ ടി ഐ അഡീ ഷണൽ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്തെ മാനവീയം സാംസ്കാരിക ഇടനാഴിക യുടെ മാതൃകയിൽ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും കലാ കാര കൂട്ടായ്മകൾക്കും അവതരണങ്ങൾക്കും പാതയോര നാട്ട രങ്ങുകൾ നിർമ്മിക്കും എല്ലാ ജില്ലയിലും ഓരോ നാട്ടരങ്ങ് സ്ഥാപിക്കാനാണ് സാംസ്കാരിക വകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ചെലവ് സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്ഥാപന ങ്ങളും കണ്ടെത്തും കോഴിക്കോട് ജില്ലയിലെ ഗെയിൽ വാതക പൈപ്പ് ലൈനു മായി ബന്ധപ്പെട്ട് കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു

കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നാളെ രാത്രി പത്തിന് നട അടക്കും

പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും ഇന്നുണ്ടാകും അന്തരിച്ച ചലച്ചിത്രതാരം കൃാപ്റ്റൻ രാജുവിന്റെ സംസ്കാരം നാളെ വൈകിട്ട് പത്തനംതിട്ട പുത്തൻപീടിക സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കും മൃതദേഹം എറണാകുളത്തുനിന്ന് നാളെ ഉച്ചയ്ക്കുശേഷം പത്തനംതിട്ടയിലെത്തിക്കും

ലോക നടപ്പുദിനം വിനോദ സഞ്ചാരദിനം എന്നിവയോടനു ബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്